ബാധിതർ

തീരപ്രദേശങ്ങളിൽ കനത്ത ജാഗ്രത പ്രതിരോധ പ്രവർത്തനങ്ങളോട് ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ആരോഗ്യമന്ത്രി

അമർനാഥ് ക്ഷേത്രത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് ദർശനം നടത്തി

എൻ

മത്സ്യബന്ധനം സംബന്ധിച്ച് നിലവിലുള്ള നിന്ത്രണങ്ങൾ തുടരും

എസ് ഓഫീസർമാരെ വീതം ഇൻസിഡന്റ് കമാൻഡർമാരായി നിയമിച്ചിട്ടുണ്ട്

വിവിധ പ്രദേശങ്ങളിൽ ക്ലസ്റ്റർ രൂപപ്പെട്ടപ്പോൾ തന്നെ സർക്കാർ ഇടപെട്ടു

പ്രവൃത്തിസമയങ്ങളിൽ ആരോഗ്യ സാമൂഹ്യ അകല മാർഗനിർദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ബാങ്ക് മാനേജർമാർ ശ്രദ്ധിക്കണമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു

ദ്വിദിന സന്ദർശനാർഥം ഇന്നലെയാണ് ശ്രീ

ഇന്നലെ ലഡാക്കും ശ്രീനഗറും സന്ദർശിച്ചു രാജ്യരക്ഷാമന്ത്രി സൈനികരെ അഭിസംബോധന ചെയ്തു വ്യോമാ അഭ്യാസ പ്രകടനങ്ങൾ വീക്ഷിച്ച ശ്രീ രാജ്നാഥ് സിംഗ് സുരക്ഷാ വിശകലന യോഗത്തിലും പങ്കെടുത്തു

മരിച്ചു ഭീകരരെ തിരിച്ചറിഞ്ഞിട്ടില്ല

ഐകൃരാഷ്ട്രസ സഭയുടെ വികസന പദ്ധതിയുടെ അവലോകന റിപ്പോർട്ട് അനുസരിച്ചാണ് ഈ വിവരമെന്നും അദ്ദേഹം അറിയിച്ചു ഈ കാലയളവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടന്ന രാജ്യം ഇന്ത്യയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നേട്ടമാണെന്ന് ശ്രീ ജാവദേക്കർ പറഞ്ഞു

ചില സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളും ബീഹാർ നിയമസഭ തെർപ്പെട്ടുപ്പും ഈ വർഷം നടക്കാനുണ്ട്

ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ച ശേഷം പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പ്ലസ്ടു പരീക്ഷകൾ മുടങ്ങിയ സാഹചര്യത്തിലാണ് ഈ നടപടി

ഈ വർഷം പ്ലസ്ടു പാസായവർക്ക് ജെഇഇ പരീക്ഷ വിജയിച്ചാൽ മതിയാകും

കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നിരവ്ധി സുപ്രധാന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ റെയിൽവേക്ക് കഴിഞ്ഞിട്ടുണ്ട് ജമ്മുകശ്മീരിലെ എല്ലാ ഭാഗങ്ങളും റെയിൽ സേവനം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നോട്ടു പോവുകയാണെന്നും ശ്രീ

കെ യാദവ് അറിയിച്ചു